വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മണിപ്പൂർ ജലവിതരണ പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു

കോവിഡ് വ്യാപനം തടയാൻ എറണാകുളം ആലുവ ക്ലസ്റ്ററിൽ ന് കർഫ്യൂ മലപ്പുറത്ത് ഒരു കോവിഡ് മരണം കൂടിയെന്ന് റിപ്പോർട്ട് കൊല്ലത്ത് പരിശോധന വർദ്ധിപ്പിക്കും

ശരത് സന്ദീപ് നായർ എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു

അടച്ചിടാൻ ഉത്തരവ്

മണിപ്പൂർ ജലവിതരണ പദ്ധതിയുടെ ശിലാസ്ഥാപനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയാ യിരുന്നു അദ്ദേഹം

സുസ്ഥിരമായ വളർച്ചയ്ക്ക് ഗതാഗത സംവിധാനങ്ങൾ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു

എന്നാൽ അടിസ്ഥാന സൌകരൃം വികസിപ്പിച്ചാൽ മാത്രമേ വിനോദ സഞ്ചാരമടക്കമുള്ള മേഖലകളിൽ മുന്നിലെത്താൻ സാധിക്കൂ ഇതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്

പ്രളയത്തിൽ മരിച്ചവർക്ക്ക് ആദ്രാഞ്ജലികൾ അർപ്പിക്കുന്ന തായും രാജ്യം ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മണിപ്പൂർ ഗവർണർ മുഖ്യമന്ത്രി മറ്റൂർമിന്തിമാർ എംപിമാർ എംഎൽഎമാർ എന്നിവർ ഇംഫാലിൽ ഇന്ന് പരി്പാടിയിൽ പങ്കെടുത്തു

രാജ്യത്തെ ആറ് എക്കോ പാർക്കുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവ്വഹിച്ചു

ഖനികൾ കോളനികൾ കാര്യാലയങ്ങൾ കൽക്കരി ലിഗ്നൈറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള മറ്റു പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വലിയതോതിലുള്ള വൃക്ഷത്തൈ നടീൽ ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പൊതുസമൂഹത്തെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള വനവത്ക്കരണത്തിന്റെ ഭാഗമായി നിർദിഷ്ട പദ്ധതി സ്ഥലങ്ങൾക്ക് സമീപത്തുള്ള മേഖലകളിലും മരത്തൈകൾ വിതരണം ചെയ്യും

പൌരന്മാരുടെ വിവരങ്ങളുടെ സ്വകാര്യത മാത്രമല്ല സാമ്പത്തിക വികസനത്തിനായി വിവരങ്ങൾ ലഭ്യമാക്കുന്നതും സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നു

കോവിഡ് പോലുള്ള മഹാമാരിക്കാലത്ത് ഇടതട വില്ലാത്ത ആഗോള വിതരുണ്ട് ശ്യംഖല കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യ മാണെന്നും അദ്ദേഹം ഫ്ലാണ്ട്തു

മത്സ്യബന്ധനതൊഴിലാളിക്ക് കോവിഡ് പോസിറ്റീവാ യതിനെ തുർന്ന് അദ്ദേഹവുമായി സമ്പർക്കമുണ്ടായിരുന്നവരോട് കാറന്റൈനിൽ പോകാൻ നിർദേശം നല്കിയിട്ടുണ്ട്

കോവിഡ് ഭേദമായ ശേഷമാണ് ഇർഷാദലി ദുബായിൽ നിന്നെത്തി വീട്ടിലെത്തി കാറന്റീനിൽ കഴിഞ്ഞിരുന്നത്

സ്വാബ് ശേഖരണ്ടത്തിനും പരിശോധനയ്ക്കും മൊബൈൽ യൂണിറ്റുകളുംവിസ്കുകളും ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം പ്രദേശത്തെ പ്രാഥമിക ആരോഗ്യകേന്ദ്രങ്ങളിലും സാമ്പിൾ ശേഖരണ ത്തിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

അവരെ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദൃം ചെയ്യും

തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ

അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിത മാണെന്ന് ചൈന പ്രതികരിച്ചു